ശിവസേനയും എൻ സി പിയും കോൺഗ്രസും സംയുക്തമായി സമർപ്പിച്ച ഹർജി പരിഗണിച്ച ശേഷമാണ് പരമോന്നത കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ശ്രീ ദേവേന്ദ്ര ഫട്നവിസിനെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ച ഗവർണറുടെ തീരുമാനത്തിനെതിരായ ഹർജിയിൽ ഇന്ന് ക്ലാവിലെ സുപ്രീം കോടതി വാദം കേൾക്കൽ ആരംഭിച്ചു

രാജ്യസഭ നേരത്തെ തന്നെ രണ്ടുമണിവരെ നിർത്തിവച്ചിരുന്നു

വോയ്സ് ലോക്സഭ സമ്മേളിച്ചപ്പോൾതന്നെ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ മഹാരാഷ്ട്രയിലെ ഗവൺമെന്റ് രൂപകരണത്തെച്ചൊല്ലി എൻ ഡി എ

ഗവൺമെന്റ്രൂപീകരണത്തിൽ മഹാരാഷ്ട്ര ഗവർണറുടെ പങ്കിനെക്കുറിച്ചുള്ള പ്രതിഷേധമുയർന്നു കോൺഗ്രസിലെ ചില അംഗങ്ങൾക്ക് ബ്ാനർ ഉയർത്തിയതിനെ സ്പീക്കർഓം ബിർലവിലക്കുകയും പ്രഅവർ സഭയിൽ നിന്നും പുറത്തുപോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു

ബഹളത്തിനിടയിലും ചോദ്യോത്തരവേളയ്ക്കായി കോൺഗ്രസ് എം

മഹാരാഷ്ട്രയിൽ ജനാധിപതൃത്തിന്റെ വായ്മൂടിക്കെട്ടിയിരിക്കുകയാണെന്ന് ശ്രീ

രാജ്യസഭയിൽ മഹാരാഷ്ട്ര വിഷയംസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യാൻ കോൺഗ്രസും ഇടതുകക്ഷികളും അടിയന്തരപ്രമേയം കൊണ്ടുവന്നു

ഗവർണറുടെ തീരുമാനം വ്യക്തമായ അടിസ്ഥാനമില്ലാതെ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം അറിയിച്ചു

എന്നാൽ ശിവസേനയും എൻ

യും കോൺഗ്രസും വളഞ്ഞ വഴിയിലൂടെ ഗവൺമെന്റ് രൂപീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു ബഹളംതുടർന്നതോടെ ശ്രീ നായിഡു രണ്ട് മണിവരെ സഭ നിർത്തിവച്ചു ന്യൂസ്ഡെസ്ക്ആകാശവാണി

നിലവിലെ ഗവൺമെന്റ് നിശ്ചയമായും നിലംപതിയ്ക്കാൻ സാധൃതയുള്ളതിനാൽ ഭാവിയിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് പ്രതിനിധി സംഘം കത്ത് സമർപ്പിച്ചതായി കോൺഗ്രസ് വക്താവ് സച്ചിൻ സാവന്ത് ട്വിറ്ററിലൂടെ അറിയിച്ചു അതേസമയം ശിവസേന എൻ സി പി കോൺഗ്രസ് സഖ്യം ഭൂരിപക്ഷം തെളിയിച്ച് മഹാരാഷ്ട്രയിൽ ഗവൺമെന്റ് രൂപീകരിക്കുമെന്ന് എൻ സി പി പ്രസിഡന്റ് ശരദ് പവാർ വൃക്തമാക്കി കാരാദിൽ മഹാരാഷ്ട്ര പ്രഥമ മുഖ്യമന്ത്രിയായ യശ്വന്ത് റാവു ചവാന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ആദരാഞ്ജലി അർപ്പിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നാളെയാണ് സൂക്ഷ്മ പരിശോധന വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാം

ജെ എം എം നേതാവ് ഹേമന്ത് സോറൻ ബാർഹെത് ദുംക എന്നിവിടങ്ങളിൽ മത്സരിക്കുന്നു

മിഥിലയുടെ സംസ്കാരം എല്ലാപേരെയും ഒരുമിച്ച് നയിക്കുന്ന സബ് കാ സാത് സബ് ക വികാസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞുപ്പ് ന്യൂഡൽഹിയിലെ മിഥില വിഭൂതി സ്മൃതി പർവ്വ് സമ്മേളനം അഭിസ്ംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ന്യൂഡൽഹിയിൽ ഗവർണർമാരുടെ അമ്പതാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പരമ്പരാഗത ജല ഉത്സവങ്ങളായ പുഷ്കരം അടക്കമുള്ളവ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും പരിശ്രമിക്കണം

ഇത് ഗവൺമെന്റിന് പദ്ധതിയോടുള്ള പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആദിവാസി വിഭാഗത്തിന്റെ ഉന്നമനത്തിനും ആദിവാസി യുവാക്കളുടെ കായിക വിദ്യാഭ്യാസ വികസനത്തിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി ഗവർണർമാരോട് ആവശ്യപ്പെട്ടു

നരേന്ദ്ര മോദി ഗവർണർമാരോട് ആഹ്വാനം ചെയ്തു

ജനവിധി അനുസരിച്ച് താൻ പ്രവർത്തിക്കുമെന്ന് ബുദ്ധ സന്യാസികളോട് സംസാരിക്കവെ ശ്രീലങ്കൻ പ്രസിഡന്റ് പറഞ്ഞു

തമിഴ് പേരുള്ള ബോർഡുകൾ നീക്കം ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹം പോലീസിനോട് ആവശ്യപ്പെട്ടു

മൂന്ന് മാസത്തിനുള്ളിൽ സെന്നിന്റെ ഗ്നാലാം കിരീടമാണിത്

ഇന്നലെ മാത്രം അഞ്ച് സ്വർണ്ണമാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്

ശ്രദ്ധേയനായ ചലച്ചിത്രകാരൻ തകാഷി മൈക്കിന്റെ ചലച്ചിത്രങ്ങളും മേളയിൽ പ്രദർശിപ്പിക്കും